ബി

അദ്ദേഹത്തെ നീക്കിയ കേന്ദ്ര നടപടി കോടതി റദ്ദാ ക്കി

സമരാനുകൂലികൾ റെയിൽവേസ്റ്റേഷനുകളിൽ ട്രെയിനുകൾ തടഞ്ഞു

സ്വകാര്യ എഫ്

സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് അലോക് വർമ്മയെ സുപ്രീംകോ ടതി വീണ്ടും നിയമിച്ചു് അദ്ദേഹത്തെ നീക്കിയ കേന്ദ്രഗവൺമെന്റ് നട പടി ഡിവിഷൻബെഞ്ച് റദ്ദാക്കി അലോക് വർമ്മയിൽനിന്ന് ചുമതലക ൾ എടുത്തുമാറ്റിയ നടപടിയും അദ്ദേഹത്തോട് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ച തീരുമാനവും കോടതി തള്ളി ഇടക്കാല സി ബി ഐ ഡയറ ക്ടറായി എം നാഗേശ്വര റാവുവിനെ നിയമിച്ച നടപടിയും കോടതി അസാ ധുവാക്കി വർമ്മ യ് ക്കെ തി രായാ തീരു മാനങ്ങൾ ഡയറക്ടറെ തെരഞ്ഞെടുത്ത് നിയമിക്കുന്ന കമ്മിറ്റിയുടെ അന്തിമ തീരു മാനത്തിനുശേഷമേ ആകാവൂ എന്നും കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര വിജി ലൻസ് കമ്മീഷൻ നടത്തുന്ന അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽനിന്ന് അലോക് വർമ്മയെ വിലക്കിയിട്ടുണ്ട് അലോക് വർമ്മയെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് ഏകപക്ഷീയമായി ഗവൺമെന്റിന് മാറ്റാനാവില്ലെന്നും ഉത്തരവിൽ പറയുന്നു

പ്രധാനമന്ത്രിയും ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസോ അദ്ദേഹം നിയോഗിക്കുന്ന മറ്റൊരു ജഡ്ജിയോ അടങ്ങുന്ന കമ്മിറ്റിയാണ് സി ബി ഐ

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് ഹർജി പരിഗണിച്ചത് അലോക്കുമാർവർമ്മയെ വീണ്ടും സി ബിഐ ഡയറക്ടറായി നിയ മിച്ച കോടതി നടപടി നരേന്ദ്രമോദിക്കും കേന്ദ്രഗവൺമെന്റിനും ഏറ്റ കനത്ത പ്രഹരമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തി നിയമവിരുദ്ധമായ ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ പേരിൽ തിരിച്ചടി നേരിടുന്ന ആദ്യ പ്രധാ നമന്ത്രിയായി നരേന്ദ്രമോദി മാറിയെന്ന് കോൺഗ്രസ് മുഖ്യ വക്താവ് രൺദീപ് സുർജെവാല ടിറ്ററിൽ കുറിച്ചു ആംആദ്മി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്

കെഎസ്ആർടിസിയും സ്വകാര്യ ബസുകളും സർവീസുകൾ നടത്തുന്നില്ല പമ്പയിലേക്കുള്ള കെഎസ്ആർടി സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്

സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ട്രെയിനുകൾ കടത്തി വിട്ടത് ആലപ്പുഴയിലും കോഴിക്കോട്ടും തിരൂരിലും പയ്യന്നൂരിലും കണ്ണപു രത്തും ട്രെയിനുകൾ തടഞ്ഞു ധൻബാദ് എക്സ്പ്രസ് മണിക്കൂറുകളോളം ആലപ്പുഴയിൽ നിർത്തിയിട്ടു ഇതേ തുടർന്ന് മിക്ക ട്രെയിനുകളും വൈകി യാണ് ഓടുന്നത് ചേളാരി ഐ

സിയിലും കൊച്ചി തുറമുഖത്തും പ്രത്യേക സാമ്പത്തിക മേഖലയിലും ജോലിക്കെത്തിയിവരെ സമരാനൂ കൂലികൾ തടഞ്ഞു പണിമുടക്കിയ തൊഴിലാളികൾ ജില്ലാ കേന്ദ്രങ്ങ ളിൽ പ്രകടനം നടത്തി ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്ത് കുടകളും മറ്റു സ്ഥാപനങ്ങളും ബലമായി അടപ്പിക്കുകയും വാഹനങ്ങൾക്ക് കല്ലെറിയുകയും ചെയ്യുന്നവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഡി

ലോക്നാഥ് ബെഹ്റ പൊലീസിന് നിർദ്ദേശം നൽകി

എസ് ആർ

സി ഉൾപ്പെടെ പൊതു ഗതാഗത വാഹനങ്ങൾക്ക് സുരക്ഷയൊരുക്കണമെന്നും ഡിജിപി നിർദ്ദേ ശിച്ചു കോഴിക്കോട്ട് കെ

യും സ്വകാര്യ ബസുകളും സർവ്വീസ് നടത്തുന്നില്ല

ഗുജറാത്തി സ്ട്രീറ്റിൽ ട്രാൻസ്പോർട്ട് കമ്പനി ഓഫീസിന് നേരെ ആക്രമണ മുണ്ടായി ്ലാൽമുൽജി ട്രാൻസ്പോർട്ട് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഓഫീസ്ിന്റെ ജനൽ ചില്ലുകൾ തകർന്നു കണ്ണൂർ ജില്ലയിൽ അങ്ങിങ്ങ് കടകൾ തുറന്നിട്ടുണ്ട് പൊതുവാഹനങ്ങൾ ഓടുന്നില്ല ഓഫീസുകളിൽ ഹാജർനില നന്നേ കുറവാണ് വിദ്യാലയങ്ങൾ പലതും പ്രവർത്തി ക്കുന്നില്ല മലപ്പുറം ജില്ലയിൽ കടകമ്പോളങ്ങൾ തുറന്നിട്ടുണ്ട്

ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ കട അടപ്പിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി മഞ്ചേരിയിൽ സമരാനുകൂലികൾ സംഘടിച്ചെത്തി കടകൾ അടപ്പിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി സ്ഥിതി നിയന്ത്രിച്ചു

വലിയങ്ങാടി അടക്കം നഗരത്തിലെ പല പ്രദേശങ്ങളിലും ബഹുഭൂരിപക്ഷം വ്യാപാര സ്ഥാപനങ്ങളും തുറന്നുപ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളും വ്യാപകമായി നിരത്തിലുണ്ട് കെഎസ്ആർടിസിയും സ്വകാര്യ ബസ് സർവീസുകളും ഇല്ലാത്തതിനാൽ സ്ഥാപനങ്ങളിലെ ഹാജർനില കുറവാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ഒലവക്കോട് ട്രെയിൻ തടഞ്ഞു കാസർകോഡ് ജില്ലയിൽ ഏറെക്കുറെ ഹർത്താൽ പ്രതീതിയാണ്

എറണാകുളം ജില്ലയിൽ പണിമുടക്ക് പൊതുവെ സമാധാനപരമാണ് ഗവൺമെന്റ് ഓഫീസുകളിൽ ഹാജർനില കുറവാണ് കൊച്ചി നഗരത്തിലെ പ്രധാന വ്യാപാര മേഖലയായ കോൺവെന്റ് ജംഗ്ഷൻ ബ്രോഡ്വേ എന്നിവിടങ്ങളിൽ കടകൾ തുറന്നു

കൊച്ചി തുറമുഖത്തും സമരാനുകൂലികൾ തൊഴിലാളികളെ തടഞ്ഞു എറണാകുളം ജില്ലാ കലക്ടർ മുഹമ്മദ് വൈ സഫീറുല്ല എറണാകുളം ബ്രോഡ് വേ കോൺവെന്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വ്യാപാരികൾക്ക് പൂർണ സംർക്ഷണം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ ഒരിടത്തും ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന് ഭാഗിക പ്രതികരണ മാണ് ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു

ഡൽഹിയിലും ചെന്നൈയിലും തൊഴിലാളി സംഘടനകൾ പണിമുടക്കിനെ അനുകൂലിച്ച് പ്രകടനം നട ത്തിയെങ്കിലും ജനജീവിതത്തെ കാര്യമായി ബാധിച്ചില്ല കൊൽക്കത്ത യിൽ ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു

മുംബൈയിൽ ബസ്സർവ്വീസുകളെ പണിമുടക്ക് ബാധിച്ചതായാണ് റിപ്പോർട്ട് കേരള എം ജി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലകൾ ഇന്നും നാളെയും നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി കണ്ണൂർ സർവകലാ ശാല നാളെ നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി

എം ബിജെപി പ്രാദേ ശിക നേതാക്കളുടെ വീടുകൾക്കുനേരെ ബോംബേറുണ്ടായി പുലർച്ചെ സി

എം നേതാവ് കെ

വീടിന്റെ മുൻഭാഗം തകർന്നു ഇതിന്റെ പിന്നാലെ ബിജെപി നേതാവ് വി

ഇരു സംഭവങ്ങളിലും ആളപായമില്ലന്ന് പൊലീസ് അറിയിച്ചു മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കു ന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്ന ഭരണഘടന ഭേഗ ഗതി ബിൽ ഉച്ചയ്ക്കുശേഷം ലോക്സഭ പരിഗണിക്കും നാളെ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിനായി സഭാസമ്മേളനം ഒരു ദിവസ ത്തേക്ക് നീട്ടിയേക്കും

ലോക്സഭയിൽ കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെലോട്ട് ഉച്ചയ്ക്ക് ബിൽ അവ തരിപ്പിക്കും ജാതിയോ മതമോ പരിഗണിക്കാതെ സാമ്പത്തിക അടിസ്ഥാ നത്തിൽ സംവരണം ഏർപ്പെടുത്തുന്ന ആദ്യ ഭേദഗതിയാണിത് പാർല മെന്റിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാലേ ഭരണഘ ടന ഭേദഗതി ബിൽ പാസ്സാക്കാനാവൂ ബില്ലിനെ ഇരു സഭകളിലും പിന്തു ണയ്ക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നൽകാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ഭരണപരിഷ് ക്കാര കമ്മീഷൻ ചെയർമാൻ വി

ബിജെപിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തിരിച്ചറിയണമെന്നും തിരുവനന്തപുരത്ത് വി എസ് ആവശ്യപ്പെട്ടു

വാർത്താ വിതര ണ പ്രക്ഷേപണ മന്ത്രാലയവും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് പരിപാ ടി സംഘടിപ്പിക്കുന്നത്

രാജ്യത്തെ സ്വകാര്യ എഫ്

ഏറ്റവും വലിയ ജനകീയ മാധ്യമമായ റേഡിയോയുടെ മുന്നോട്ടുള്ള ചുവടുവെ പ്പിൽ പുത്തൻ കാൽവെപ്പാണിതെന്ന് കേന്ദ്രമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഡൽഹിയിൽ പറഞ്ഞു വിവിധ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ എഫ്

ചാനലുകൾക്ക് ആകാശവാണിയുടെ വാർത്താ കൈമാറ്റം സ്വാഗതാർഹമായ നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സേവനം ഉച്ചകഴിഞ്ഞ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും സമാജ്വാദി പാർട്ടി എം

പശ്ചിമ ബംഗാളിൽ രഥയാത്രയ്ക്ക് അനുമതി നൽകണമെന്ന ബിജെ പിയുടെ അപേക്ഷയിൽ സുപ്രീംകോടതി സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടു

പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപും സംതൃപ്തി രേഖപ്പെടുത്തി വ്യാപാരബന്ധം സംബ ന്ധിച്ചും അഫ്ഗാനിസ്ഥാനിലെ ഇടപെടൽ സംബന്ധിച്ചും ഇരുനേതാക്കളും ടെലിഫോണിൽ സംസാരിച്ചു ചെന്നൈയിൽ ദേശീയ വോളിബോൾ ചാംപ്യൻഷിപ്പിൽ കേരളത്തിന്റെ പുരുഷ വനിത ടീമുകൾ സെമിയിൽ കടന്നു കാർട്ടറിൽ പുരുഷ ടീം ആന്ധ്രയേയും വനിതാടീം ഹരിയാനയേയുമാണ് നേരിട്ട സെറ്റുകൾക്ക് തോൽപ്പിച്ചത്

ഒരു കുടുംബത്തിന് പരമാവധി അഞ്ച് സെന്റ് എന്ന നിലയിൽ ആറ് ലക്ഷം രൂപയാണ് സ്ഥലം വാങ്ങാനായി അനുവദിക്കുക കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് കോഴിക്കോട് കടപ്പുറത്ത് മറ്റന്നാൾ തുടക്കമാകും വൈകീട്ട് ആറിന് എം

സംസ്ഥാന ഗവൺമെൻറിന്റെ സഹകരണത്തോടെ ഡിസി കിഴക്കേമുറി ഫൌണ്ടേഷൻ ആണ് ഫെസ്റ്റ് സംഘടിപ്പി ക്കുന്നത്